ലഫ്റ്റനന്റ് ഗവർണർമാർ ഇന്ന് ചുമതലയേൽക്കും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ഇന്ന് ദേശീയ ഏകതാദിന മായി ആചരിക്കുന്നു ഗുജറാത്തിലെ ഏകതാ പ്രതിമയിൽ പ്രധാന മന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും

സംസ്ഥാനത്ത് രണ്ട്ദിവസം മത്സ്യബന്ധനത്തിന് നിരോധനം നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്

എസ് എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്

കൊൽക്കത്ത ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പി ന്നും ജമ്മുകശ്മീർ സംസ്ഥാനം വിഭജിച്ച് രൂപീകരിച്ച ജമ്മുകശ്മീർ ലഡാക്ക് കേന്ദ്രഭരണപ്രദേശങ്ങൾ അർധരാത്രി നിലവിൽവന്നു ജമ്മുക ശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായി ജി

മുർമുവും ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായി ആർ

കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒൻപതായി ഉയരും രാജ്യത്തിന്റെ പ്രഥമ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ഇന്ന് ദേശീയ ഏകതാദിനമായി ആചരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കെവാദിയയിലെ ഏകതാ പ്രതി മയിൽ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനായ സർദാർ പട്ടേലിന് ശ്രദ്ധാജ്ഞലി അർപ്പിക്കും തുടർന്ന് ഏകതാദിവസ് പരേഡിലും പ്രധാനമന്ത്രി പങ്കെടു ക്കും

രാജ്യത്ത് ഒട്ടേറെ പരിപാടികൾ വല്ലഭായ് പട്ടേലിന്റെ ഓർമ യ്ക്കായി സംഘടിപ്പിക്കുന്നുണ്ട് ഏകലക്ഷ്യം ഏകഭാരതം ശ്രേഷ്ഠഭാ രതം എന്ന സന്ദേശവുമായി രാജ്യത്തിന്റെ ഐക്യത്തിനായി ഓട്ടവും സംഘടിപ്പിക്കും ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏകതാ ദിവസ് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്യും സംസ്ഥാന എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാവിലെ രാഷ്ട്രീയ ഏകതാദിന പ്രതിജ്ഞയെടുക്കും ദേശീയോദ്ഗ്രഥന സന്ദേശം പ്രചരി പ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് ജില്ലാ ആസ്ഥാനങ്ങളിലും റൺ ഫോർ യൂണിറ്റി പരിപാടി സംഘടിപ്പിക്കും കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന റൺഫോർ യൂണിറ്റി കൂട്ടയോട്ട പരി പാടി രാവിലെ കേന്ദ്രസഹമന്ത്രി വി

തുടർന്ന് സി

എസ് ഇ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ഉദ്യോഗ്മണ്ഡലിലെ സി

യും എച്ച്

ഉം മുരളീധരൻ സന്ദർശി ക്കും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്ന വർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം സർദാർ വല്ലഭായി പട്ടേലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ആദ്യ ഏകതാ അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കും

തിരുവനന്തപുരത്ത് കെ

സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പുഷ്പാർച്ചനയും അനു സ്മരണയോഗവും ചേരും കേന്ദ്രമന്ത്രി വി സദാനന്ദഗൌഡ ഇന്ന് കൊച്ചിയിൽ വിവിധ പരിപാ ടികളിൽ പങ്കെടുക്കും രാവിലെ സംസ്ഥാന സി

എസ് ഇ ഇന്റർ സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും തുടർന്ന് ഉദ്യോഗമണ്ഡലിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എൻജിനി യറിങ് ആൻഡ് ടെക്നോളജിയിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹം എഫ്

ടി എച്ച്

കൊച്ചിയിൽ നടക്കുന്ന് പൊതുയോഗത്തിലും സദാനന്ദഗൌഡ പങ്കെടുക്കും അറബിക്കടലിൽ ലക്ഷദ്വീപ് മേഖലയിൽ രൂപംകൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്നലെ വൈകീട്ട് മുതുൽ മഹാചുഴലിക്കാറ്റായി ശക്തിപ്രാ പിച്ചിരിക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയി ച്ചു നേരത്തെ രൂപംകൊണ്ട ക്യാർ സൂപ്പർ ചുഴലിക്കാറ്റ് ദുർബലപ്പെട്ട് തീവ്രചുഴലിക്കാറ്റായി മാറിയിട്ടുണ്ട് ഒരേസമയം അറബിക്കടലിൽ രണ്ട് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് അപൂർവ സംഭവമാണെന്ന് കേന്ദ്ര കാലാ വസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മഹാപത്ര ന്യൂഡൽഹി യിൽ അറിയിച്ചു

മഹാചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഇല്ലെങ്കിലും അതിന്റെ പ്രഭാവം കേരളത്തി ലുണ്ടാവാനിടയുണ്ടെന്നും ശക്തമായ കാറ്റിനും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി ലക്ഷദ്വീപിൽ അതീവജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ലക്ഷദ്വീപിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരന്തനിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഗൌരവമായി കണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മന്ത്രി ജെ

തീരങ്ങളിൽ സൂക്ഷിച്ച മത്സ്യബന്ധനയാനങ്ങൾ സുര ക്ഷിത സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി മാറ്റണമെന്നും മന്ത്രി തിരുവ നന്തപുരത്ത് പറഞ്ഞു കൊച്ചി പറവൂർ താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എറണാകുളം ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ ബീച്ചുകളിൽ ഇന്ന് പ്രവേ ശനം നിരോധിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കണ്ണൂർ ജില്ലയിലെ ബീച്ചുകളിൽ ഇന്ന് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു കൊല്ലം ജില്ലയിൽ മൺറോതുരുത്തിൽ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറി കല്ലുവാതുക്കലിൽ മരംവീണ് ഒരു വീട് ഭാഗികമായി തകർന്നു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്

കൊൽക്കത്ത ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു

ടി

ഇന്ന് മുംബൈ സിറ്റി ഒഡീഷയെ നേരിടും

കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബാൾ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും

കോളേജി നേയും രണ്ടാം മത്സരത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് മലപ്പുറം കൊണ്ടോട്ടി ഇ

ഇ എ കോളേജിനേയും നേരിടും അടുത്ത മാസം ഭുവനേശ്വറിലെ കലിംഗ ഇൻസിറ്റിയൂട്ട് ഓഫ് ടെക് നോളജിയിൽ നടക്കുന്ന അഖിലേന്ത്യാ അന്തർസർവകലാശാല വനിതാ ഫുട്ബാൾ ചാംപ്യൻഷിപ്പിന് കാലിക്കറ്റ് സർവകലാശാല ടീം യോഗൃത നേടി ബെംഗളുരുവിൽ നടക്കുന്ന സൌത്ത് സോൺ ചാംപ്യൻഷിപ്പിൽ ആതിഥേയരായ ക്രൈസ്റ്റ് സർവകലാശാലയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് സർവകലാശാല ടീം യോഗൃത ഉറപ്പാക്കിയത് തൃശൂരിൽ അൻപതാമത് സംസ്ഥാന സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷി പ്പിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു

ഏഴ് സ്വർണവും ഏഴ് വെള്ളിയും ആറ് വെങ്കലവുമായി കോട്ടയമാണ് രണ്ടാംസ്ഥാനത്ത് വാളയാർ കേസ് പ്രുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ

കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ അംഗം യശ്വന്ത് ജയിൻ ഇന്ന് രാവിലെ വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സഹോദരിമാരുടെ വീട് സന്ദർശിക്കും വാളയാറിലെ ദളിത് പെൺകുട്ടികളുടെ ദുരൂഹമരണത്തിനുത്തരവാ ദികളായ പ്രതികളെ വെറുതെവിട്ട കേസിൽ സംസ്ഥാന ഗവൺമെന്റി നോട് വിശദീകരണം ആവശ്യപ്പെടണമെന്ന് കെ

സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു കുറ്റവാളികളെന്ന് കരുതു വന്നവർ സി

എമ്മിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടിരിക്കുകയാ ണെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് അവരെ സംരക്ഷിക്കുകയാ ണെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു

പ്രതികൾ വിട്ടയക്കപ്പെട്ടത് അന്വേഷണത്തിലെ പിഴവ് കാരണ മാണെന്നും പ്രോസിക്യൂഷൻ പരാജയമാണെന്നും തങ്ങൾക്ക് നീതി ലഭി ച്ചില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞിരുന്നു കോഴിക്കോട് കൂടത്തായ് കൊലപാതക പരമ്പരയിൽ സിലിയുടെ മകൾ ആൽഫൈന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽവിട്ട ജോളിയെ പുലിക്കയം വീട്ടിലെത്തിച്ചു തെളിവെടുത്തു

പരമ്പരാഗത അറിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിൽനിന്ന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ

ടെലിവിഷൻ ചാനലുകൾ ഉള്ളടക്കം സമൂലമായി പരിഷ്കരിക്കണ മെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സംസ്ഥാന ടെലി വിഷൻ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായി രുന്നു അദ്ദേഹം

നിതി അയോഗ് തയ്യാറാക്കിയ സ്കൂൾ ഗുണനി ലവാരരേഖ വിശകലനം ചെയ്യുന്നതിന് എസ്

ആർ ടി സംഘടിപ്പിച്ച ശിൽപ്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തമിഴ്നാട് തൃശ്നാപള്ളിയിലെ തങ്കസ്വാമിയാണ് മരിച്ചത്